കെ ശശീന്ദ്രൻ

പത്തര ലക്ഷത്തിലേറെപ്പേർക്ക് രോഗമുക്തി ത സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും നിയന്ത്രിത മത്സ്യബന്ധനം ഓഗസ്റ്റ് അഞ്ച് മുതൽ

ത സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ

കണ്ടെയ്ൻമെന്റ് സോണുകളിലെ ഡിപ്പോകൾ ഒഴികെ ഇടങ്ങളിൽ നിന്നായിരിക്കും യാത്രക്കാരുടെ ആവശ്യം കണക്കിലെടുത്താണ് സർവ്വീസ്

ഓൺലൈൻ ബുക്കിംഗും ആരംഭിച്ചതായി മന്ത്രി അറിയിച്ചു സ്വകാര്യ ബസ്സുകൾക്ക് രണ്ടുമാസംകൂടി നികുതി അടയ്ക്കാൻ സാവകാശം നൽകിയിട്ടുണ്ടെന്നും ജി ഫോം നൽകി സർവ്വീസുകൾ നിർത്തിവെയ്ക്കാൻ ബസ്സുടമകൾ എടുത്ത തീരുമാനം പിൻവലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു

രുമ കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റും സ്ട്രോക്ക് യൂണിറ്റും മന്ത്രി കെ കെ ശൈലജ നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും

രുമ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വിജിലൻസ് ഉൾപ്പെടെ പൊലീസിന്റെ എല്ലാ സ്പെഷ്യൽ യൂണിറ്റുകളിലെയും ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഐ ജി ഐ ജി

ഡി ജി പി തുടങ്ങിയ ഉദ്യോഗസ്ഥർ നേരിട്ടോ അല്ലാതെയോ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചു

ഇതിൽ വ്യാപാരികളും ചുമട്ടു തൊഴിലാളികളും കടയിലെ വിൽപ്പനക്കാരും ഉൾപ്പെടുന്നു

രുമ കോവിഡ് ബാധിതനായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആലുവ എടയപ്പുറം മല്ലിശ്ശേരി എം പി അഷറഫ് മരിച്ചു

രുമ കോവിഡിനെത്തുടർന്ന് സംസ്ഥാനത്തെ മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകളിൽ അധ്യയനം നടക്കാത്ത സാഹചര്യത്തിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന ചെലവ് തുക അവരുടെ അക്കൌണ്ടുകളിൽ നിക്ഷേപിക്കണമെന്ന് പട്ടികജാതി പട്ടിക ഗോത്ര കമ്മീഷൻ നിർദ്ദേശിച്ചു കേരള പൊലീസിലെ പട്ടിക വർഗ്ഗ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് ഓഗസ്റ്റ് മൂന്നുവരെ അപേക്ഷിക്കാമെന്ന വിവരം പ്രമോട്ടർമാർ മുഖേന കോളനികളിൽ പ്രചരിപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വനാന്തരങ്ങളിലെയും വനാതിർത്തികളിലെയും സെറ്റിൽമെന്റ് കോളനികളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്

മത സാംസ്കാരിക കൂട്ടായ്മകളും അനുവദിക്കേണ്ടതില്ലെന്നാണ് ഭരണകൂടത്തിന്റെ തീരുമാനം രുമ കോവിഡ് പോസിറ്റീവായാൽ സമ്പർക്കത്തിൽപ്പെട്ടവരെ വളരെ വേഗം കണ്ടെത്താൻ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ഓൺലൈൻ സംവിധാനമൊരുക്കി

കോവിഡ് സ്ഥിരീകരിച്ച ഉദ്യോഗസ്ഥനുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കുകയാണെന്ന് അധികൃതർ അറിയിച്ചു നഗരസഭ ഉദ്യോഗസ്ഥന്റ സ്രവം എടുത്ത ഇരിക്കൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും കോവിഡ് സ്ഥിരീകരിച്ചു രുര സംസ്ഥാനത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും എന്നാൽ കോവിഡ് സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളോടെ ഓഗസ്റ്റ് അഞ്ച് മുതലേ മത്സ്യബന്ധനം സാധാരണ നിലയിലാകൂ അന്നുമുതൽ എല്ലാ ബോട്ടുകൾക്കും നമ്പർ അടിസ്ഥാനത്തിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെടാം കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മീൻ പിടിക്കുന്നവർ അതാത് സോണുകളിൽ തന്നെ അവ വിറ്റഴിക്കണം മത്സ്യലേലം പൂർണ്ണമായി ഒഴിവാക്കി പ്രാദേശിക ജനകീയ കമ്മിറ്റികൾ മത്സ്യത്തിന്റെ വില നിശ്ചയിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു രുമ പ്രവാസികളെ സ്വദേശത്തെത്തിക്കുന്ന വന്ദേഭാരത് ദൌത്യത്തിന്റെ അഞ്ചാം ഘട്ടം നാളെ ആരംഭിക്കും

ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റേയും ഓർമപ്പെടുത്തലുമായി ഇസ്ലാം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ മകൻ ഇസ്മായിലിനെ ദൈവ കൽപന മാനിച്ച് ബലി നൽകാൻ തീരുമാനിച്ചതിന്റെ ഓർമ പുതുക്കലാണ് ബലിപെരുന്നാൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ഈദുൽ അസ്ഹ

രുമ പുതിയ വിദ്യാഭ്യാസ നയം വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് നിർണ്ണായക ചുവടുവെയ്പാണെന്ന് ഉപരാഷ്ട്രപതി എം

മാതൃഭാഷയ്ക്കും ബഹുഭാഷാ പഠനത്തിനും ഊന്നൽ നൽകുന്ന പുതിയ നയം ഇന്ത്യയുടെ വൈവിധ്യം തിരിച്ചറിയാൻ പഠിതാക്കളെ സഹായിക്കുന്നതാണെന്നും ശ്രേഷ്ഠ ഭാഷകൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണെന്നും അദ്ദേഹം കുറിച്ചു

ഭരണഘടനാ മൂല്യങ്ങൾക്കും സാമൂഹ്യനീതിയ്ക്കും അനുഗുണമാണ് പുതിയ നയമെന്നും ഉപരാഷ്ട്രപതി ട്വിറ്ററിൽ എഴുതി

മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കും മത്സ്യബന്ധനാ അവകാശം ഉറപ്പാക്കാനും ഇതായിരിക്കും നല്ലതെന്ന് അവർ പറഞ്ഞു കപ്പൽ പാത സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളി സംഘങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച് കേന്ദ്രത്തിന് നിവേദനം നൽകാൻ വിളിച്ചു ചേർത്ത വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദ്യ നിവേദനത്തിൽ കേരളം നൽകിയ നിർദ്ദേശങ്ങൾ കേന്ദ്രം വേണ്ട തരത്തിൽ പരിഗണിച്ചില്ലെന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു

ഇതിന്റെ വിജ്ഞാപനം ഓഗസ്റ്റ് ആറിന് പുറപ്പെടുവിക്കും

അഞ്ചുമണിയ്ക്ക് വോട്ടെണ്ണൽ തുടങ്ങും

എസ് എസ്സുകാരേക്കാൾ അവരുടെ കുപ്പായമണിയുന്നത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി ഇടത് ഗവൺമെന്റിനെതിരെ ബി ജെ പി രാവിലെ ഉന്നയിക്കുന്ന ആരോപണം വെയിലാറും മുമ്പെ ചെന്നിത്തല ആവർത്തിക്കുമെന്ന് അദ്ദേഹം ദേശാഭിമാനി ദിനപത്രത്തിലെ ലേഖനത്തിൽ പറഞ്ഞു കോൺഗ്രസ്സിനുള്ളിലെ ആർ എസ്എസ്സിന്റെ സർ സംഘ്ചാലകായി ചെന്നിത്തല മാറിയെന്നും കോടിയേരി ആരോപിച്ചു രുമ ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച ചലച്ചിത്ര നടൻ അനിൽ മുരളിയുടെ സംസ്കാരം തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടന്നു കരൾ രോഗ ബാധയെത്തുടർന്ന് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു അനിൽ മുരളിയുടെ അന്ത്യം

രുര രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ ആദ്യ വിപണനം ആരംഭിച്ചു